കോർപ്പറേഷൻ പരിധിയിൽ സമ്പൂർണ ലോക്ക്ഡൌൺ ഇളവുകളോടെ തുടരും

ത ഫ്രാൻസിൽ നിന്ന് അഞ്ച് റാഫേൽ യുദ്ധ വിമാനങ്ങൾ ഇന്ന് രാജ്യത്തെത്തും

സാങ്കേതികവിദ്യയിലൂടെ സാമ്പത്തിക ശാക്തീകരണം മേഖലയുടെ സുസ്ഥിരതക്ക് സാമ്പത്തിക വിവേകപൂർണമായ രീതികൾ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും മുതിർന്ന ഉദ്യോഗസ്ഥരും ആശയവിനിമയത്തിൽ പങ്കെടുക്കും രുമ സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ആയിരം കവിഞ്ഞു

കോട്ടയം മലപ്പുറം തൃശൂർ ജില്ലകളിൽ രോഗബാധിതരുടെ എണ്ണം നൂറിലേറെയാണ്

രേര തിരുവനന്തപുരത്ത് കോവിഡ് വൻതോതിൽ പടർന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

തീരദേശത്തിന് പുറമെ പാറശ്ശാല കുന്നത്തുകാൽ പട്ടം പെരുംകടവിള ബാലരാമപുരം കാട്ടാക്കട പ്രദേശങ്ങളിലും രോഗബാധ അധികരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുദ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ സമ്പൂർണ ലോക്ക്ഡൌൺ തുടരുമെന്ന് ജില്ലാ കലക്ടർ ഡോ

മറ്റു ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം രീതി പ്രയോജനപ്പെടുത്തണം

ഹൈപ്പർ മാർക്കറ്റ് മാൾ സലൂൺ ബ്യൂട്ടി പാർലർ സ്പാ എന്നിവ ഒഴികെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ ഏഴ് മുതൽ വൈകീട്ട് ഏഴു വരെ തുറന്നു പ്രവർത്തിക്കാം വൈകീട്ട് നാലു മുതൽ ആറു വരെ വിൽപന മുതിർന്ന പൌരൻമാർക്ക് മാത്രമായിരിക്കും മാർക്കറ്റുകളിൽ കൂട്ടംകൂടലുകൾ അനുവദിക്കില്ല ക്രിറ്റിക്കൽ കണ്ടെയിൻമെന്റ് സോണുകളിൽ ഇളവുകളൊന്നും അനുവദിക്കില്ലെന്നും കലക്ടർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി

ഇതനുസരിച്ച് കോവിഡ് രോഗം മൂർച്ഛിച്ച് അവയവങ്ങളെ ബാധിച്ച് മരണമടയുന്ന കേസുകൾ മാത്രമേ കോവിഡ് മരണത്തിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയൂ കോവിഡ് ബാധിച്ച ഒരാൾ മുങ്ങി മരിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ അപകടത്തിൽ മരിക്കുകയോ ചെയ്താൽ കോവിഡ് മരണത്തിൽ ഉൾപ്പെടുത്തില്ല ഗുരുതരമായ അസുഖമുള്ള ഒരാൾ രോഗം മൂർച്ഛിച്ച് മരിച്ചാൽ പോസിറ്റീവാണെങ്കിലും കോവിഡ് മരണത്തിൽ പെടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബലിപെരുന്നാൾ ദിനത്തിൽ പരമാവധി നൂറുപേർക്കാണ് പള്ളികളിൽ പ്രാർത്ഥന നടത്താൻ അനുമതിയുള്ളതെന്നും ചെറിയ പള്ളികളിൽ കുറച്ചു പേർക്ക് മാത്രമേ ആരാധന നടത്താൻ അനുമതി നൽകൂവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കോവിഡ് രോഗബാധ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദേദ വയനാട് ജില്ലയിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ എട്ടു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച തവിഞ്ഞാൽ പഞ്ചായത്തിലെ വാളാട് ആശങ്കാജനകമായ സാഹചര്യമാണുള്ളത്

തവിഞ്ഞാൽ തൊണ്ടർനാട് എടവക ഗ്രാമപഞ്ചായത്തുകളും മാനന്തവാടി നഗരസഭയും പൂർണമായി കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ കലക്ടർ ഡോ അദീല അബ്ദുള്ള പ്രഖ്യാപിച്ചു രുമ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി ഉൾപ്പെടെ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണോയെന്ന് കടുത്ത വരുംദിവസങ്ങളിലെ പരിശോധനാ ഫലങ്ങളും രോഗവ്യാപനത്തോതും വിലയിരുത്തിയശേഷമേ തീരുമാനിക്കൂവെന്ന് ജില്ലാ കലക്ടർ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു

രുമ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന പൌരന്മാരെയും മാരക രോഗങ്ങളുള്ളവരേയും സംരക്ഷിക്കാൻ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ കരുതൽ കെയർ സെന്ററുകൾ ഒരുക്കും മരിച്ചവർ കോവിഡ് ബാധിച്ച് ജില്ലയിൽ ഈ വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായമായവരെ സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം പ്രത്യേക കർമ്മ പദ്ധതി ആവിഷ്കരിച്ചത്

നാലു പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല

രോഗ വ്യാപനം കുറക്കുന്നതിനായി ആന്റിജൻ പരിശോധനയും ആരംഭിച്ചു

മെഡിക്കൽ കോളേജിൽ സജ്ജമായ വിവിധ കൊവിഡ് പരിശോധനാ ചികിത്സാ സൌകര്യങ്ങൾ ഇന്ന് മന്ത്രി കെ

ശൈലജ വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും

യു പ്ലാസ്മ ഫെറസിസ് മെഷീൻ എന്നിവയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്

രുമ കോഴിക്കോട് കോർപ്പറേഷനിലെ ചെട്ടിക്കുളം പുതിയറ മീഞ്ചന്ത ഡിവിഷനുകളും ചെങ്ങോട്ട്ക്കാവ് ഗ്രാമപഞ്ചായത്തിലെ മാടാക്കര ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ മുതുവണ്ണാച്ച കുനിയോട് ചോറോട് ഗ്രാമപഞ്ചായത്തിലെ വൈക്കിലശ്ശേരി വാർഡുകളും കണ്ടെയ്മെന്റ്സോണിൽ നിന്നും ഒഴിവാക്കി

വിവരങ്ങളുമായി സയ്യിദ് അലി ശിഹാബ് തങ്ങൾ

നിലവിലെ സ്റ്റാർട്ടപ്പുകളെ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കെ

സി വഴി മൂന്ന് പുതിയ പദ്ധതികൾ കൂടി തുടങ്ങുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ വ്യോമ സേനയ്ക്ക് കരുത്തേകാൻ ഫ്രാൻസിൽ നിന്നും അഞ്ച് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ന് ഇന്ത്യയിലെത്തും

രുമ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തു കേസിൽ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പത്തര മണിക്കൂർ ചോദ്യം ചെയ്യലിനു ശേഷം എൻ ഐ എ വിട്ടയച്ചു രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷമാണ് ശിവശങ്കറിനെ എൻ ഐ

ഐ എയുടെ ദക്ഷിണ മേഖല മേധാവി കെ ബി നന്ദനയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ

പശ്ചിമ ബംഗാളിലെ ഹാൽദിയ തുറമുഖത്തേക്കാണ് ഫാക്ട് ആദ്യമായി തീരം വഴി ചരക്ക് അയച്ചത്

രുര അംഗീകൃത ഫിഷ് പ്രോസസിംഗ് യൂണിറ്റിലേക്ക് കൊല്ലം ജില്ലയ്ക്ക് പുറത്ത് നിന്നും അന്യസംസ്ഥാനങ്ങളിൽ നിന്നും മത്സ്യം കൊണ്ടുവന്നു കയറ്റുമതി ആവശ്യത്തിനായി മാത്രം സംസ്കരണം നടത്തുന്നതിന് ജില്ലാ കലക്ടർ അനുമതി നൽകി ജില്ലയ്ക്കുള്ളിൽ ഇത്തരം മത്സ്യം വിൽപന നടത്തുവാൻ അനുവദിക്കില്ല രുമ സംസ്ഥാനത്ത് കനത്തമഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്